നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

തെളിയിക്കാനുള്ള അവസരം നൽകുമെന്ന് അസം ഗവൺമെന്റ്

ഗവൺമെന്റ് ജോലി നൽകുമെന്ന് ഗവർണർ സത്യപാൽ മാലിക്

ജനങ്ങളെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ കായികപരിശീലനം ശീലമാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതു സംബന്ധിച്ച സത്യവാചകം ചൊല്ലിക്കൊടുക്കും കായികക്ഷമതയുടെയും ആരോഗ്യത്തിന്റെയും പാതയിലേക്ക് രാജ്യത്തെ നയിക്കാൻ ആവിഷ്ക്കരിച്ച ഫിറ്റ് ഇന്ത്യ പരിപാടിയെക്കുറിച്ച് പ്രധാനമന്ത്രി കുഴിഞ്ഞ ഞായറാഴ്ചത്തെ നടന്ന മൻ കി ബാത്ത് പരിപാടിയിൽ പരാമർശ്രീച്ചിരുന്നു

ഗുസ്തി താരം ബജ്റംഗ് പുനിയയും പാരാ അത്ലറ്റിക് ദീപ മാലിക്കും രാജീവ്ഗാന്ധി ഖേൽ രത്ന പുരസ്ക്കാരം ഏറ്റുവാങ്ങും മലയാളിയായ മുഹമ്മദ് അനസ് രവീന്ദ്ര ജഡേജ ഗുർപ്രീത് സിങ് സന്തു തുടങ്ങിയവർ അർജ്ജുന അവാർഡ് ഏറ്റുവാങ്ങും

ഇത് ഇന്ദ്രപ്രസ്ഥ എഫ് എം ഗോൾഡ് ചാനലുകളിലും കേൾക്കാം

ഖേലോ ഇന്ത്യ പോലെ ഫിറ്റ് ഇന്ത്യ പ്രചാരണ പരിപാടി രാജ്യത്ത് കായികക്ഷമതാ സംസ്കാരം വളർത്താൻ ഉപകരിക്കുമെന്ന് ക്രിക്കറ്റ് താരം ഗൌതം ഗംഭീർ ആകാശവാണിയോട് പറഞ്ഞു നല്ല കായികതാരം ആകാൻ കായികക്ഷമത അതൃന്താപേക്ഷിതമാണെന്ന് ഗൌതം കൂട്ടിച്ചേർത്തു ആരോഗ്യ കായിക ക്ഷമതാ നിലവാരത്തിൽ ഇന്ത്യ ലോക രാജ്യങ്ങൾക്കിടയിൽ മുന്നേറ്റം നടത്തുന്നതായി വസ്തുതകളെ ഉദ്ധരിച്ച് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തു

വിൽസൺ ആകാശവാണിയോട്

ഐ പി ചോപ്പർ കേസുമായി ബന്ധപ്പെട്ട് സി ബി

ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെന്ന് സിബിഐ ഡൽഫ്പി ക്ടോടതിയെ അറിയിച്ചു കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന് കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് വ്യക്തികളുടെട്ടെയും ഇടപെടലുകൾ സംബന്ധിച്ച് അന്വേഷണം നടന്നു വരുന്നതായിട്ടും ഭകസിലെ ഇടനിലക്കാരനായ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ജാമ്യാപേക്ഷയെ ഏതിർത്ത സിബിഐ അറിയിച്ചു കേസിൽ അന്താരാഷ്ട്ര തല്പത്തിൽ അന്വേഷണം ആവശ്യമാണെന്നും ഇതിലേക്കായി ഒൻപത് രാജ്യങ്ങളുടെ സഹായം തേടേണ്ടതുണ്ടെന്നും സിബിഐ അറിയിച്ചു

പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും രണ്ട് ബില്ല്യനിലധികം തുക വെട്ടിച്ചെന്നാണ് കേസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രതി രാജ്യം വിട്ടതായും അതിനാൽ വാറന്റുകൾ നടപ്പാക്കാൻ സാധിക്കില്ലെന്നും സിബിഐ കോടതിയെ അറിയിച്ചു ലണ്ടനിൽ അറസ്റ്റിലായ നിരവ്മോദിയുടെ കൈമാറ്റം സംബന്ധിച്ചുള്ള നടപടികൾ തുടരുകയാണെന്നും സഹോദരൻ നിശാലിനെയും മറ്റൊരു പ്രതിയായ സുഭാഷ് പരബിനെയും കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും സിബിഐ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു

ദേശീയ പൌരത്വ രജിസ്റ്ററിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഈ ട്രൈബ്യൂണലുകളെ സമീപിക്കാവുന്നതാണ്

കൽക്കരി ഖനനത്തിനുള്ള ഓട്ടോമാറ്റിക് റൂട്ട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നൂറ് ശുതിമാണ് വിദേശനിക്ഷേപം നടത്താനും അനുമതി നൽകിയതായി കേന്ദ്ര വൃവ്സ്പായ വാണിജ്യമന്ത്രി പിയുഷ് ഗോയൽ അറിയിച്ചു

ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനത്തിലാണ്ട് ക്കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്

ബി ബി എസ് സീറ്റുകൾ സൃഷ്ടിക്കാനാകും

സബ്സിഡി തുക നേരിട്ട് കർഷകരുടെ അക്കൌണ്ടുകളിൽ എത്തിക്കുമെന്നും ശ്രീ

ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ രാജ്ഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ ഗവർണർ ്ജനങ്ങളോട് ആവശ്യപ്പെട്ടു ജമ്മു കാശ്മീർ ജനതയുടെ സാംസ്കാരികവും ഭാഷാപരവും മതപരവുമായ മൌലിക സ്വഭാവം പരിരക്ഷിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഗവർണർ എടുത്തുപറഞ്ഞു

മലയോര മേഖലകൾക്ക് അനുയോജ്യമായ വിളകളും ക്ടൂറ്റ്ഷ്ടിരീതികളും എടുത്തുകാട്ടുന്ന വിജ്ഞാൻ മേള അദ്ദേഹം ഉദ്ഘാടനം ച്ചെയ്യും ് ജമ്മു കാശ്മീരിൽ നിന്ന് ലഡാക്കിനെ വേർപെടുത്തിയതിനു ശേഷ്പ്പിൽഭ്യന്തരമന്ത്രി നടത്തുന്ന ആദ്യ ലഡാക്ക് സന്ദർശനമാണിത് ഗവേഷ്ണൂ അധിഷ്ഠിത കൃഷിരീതികളും നൂതന സങ്കേതങ്ങളുടെ പ്രയോഗ്ദവും പ്രദ്ദേശവാസികളെ പരിചയപ്പെടുത്തുന്നതിനാണ് ശ്യസ്ത്ര്യമേള സംഘടിപ്പിക്കുന്നതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മേളയിൽ പ്പ്ഡീ

ഡി

എന്നാൽ അതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല

സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകകുറവ് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി വൈകുന്നേരം തിരുവനന്തപുരത്ത് മന്ത്രി കെ

ശൈലജയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുഖ്യാതിഥിയാകും കഴിഞ്ഞ വർഷം കാസർഗ്ഗോൾഡ് മലപ്പുറം കണ്ണൂർ വയനാട് ജില്ലകളിൽ തുടക്കമിട്ട സമ്പുഷ്ട ക്ടേരളം പദ്ധതിയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമാക്കുന്നത്

പ്രളിയ്ക്കുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം സംസ്ഥാന ഗവൺമെന്റിൽ നീ്ന്ന് ലഭിക്കേണ്ടതുണ്ടെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു

പി എന്ന് നിലയിൽ താനും യു ഡി ഫും ഉം നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തും

ഇന്ന് കോഴിക്കോട് ജില്ലയും രാഹുൽ സന്ദർശിക്കും

എഫ് സ്ഥാനാർത്ഥിയെ ശനിയാഴ്ച നടക്കുന്ന യു

കേരളാ കോൺഗ്രസിലെ പി